കുമാരസ്വാമി രാജിവെച്ചു പുതിയ മന്ത്രിസഭ രൂപീകരിക്കാൻ ബി ജെ പി അധ്യക്ഷൻ അമിത്ഷാ പാർട്ടി നേതാക്കളുമായി ചർച്ച നടത്തി രാജ്യം കണ്ട ഏറ്റവും ഹീനമായ കുതിരകച്ചവടമാണ് കർണാടകയിൽ ബി ജെ പി നടത്തിയതെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ

വേണു ഗോപാൽ സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറഞ്ഞു ്വടക്കൻ ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ് കേരള ബാങ്ക് യാഥാർത്ഥ്യമാകുന്നതോടെ സഹകരണ ബാങ്കുകൾ ആധു നികവൽക്കരിക്കപ്പെടുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സർവകലാശാലകളുടെ പ്രവർത്തനത്തിൽ ജാഗ്രത വേണമെന്ന് ഗവർണർ

കർണ്ണാടകയിൽ വിശ്വാസവോട്ടെടുപ്പിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് മുഖ്യമന്ത്രി എച്ച്

കുമാരസ്വാമി രാജിവെച്ചു

പാർട്ടി വിപ്പ് ലംഘിച്ച ബി എസ് പി അംഗത്തെ പാർട്ടി അദ്ധ്യക്ഷ മായാവതി പാർട്ടിയിൽ നിന്നു സസ്പെന്റ് ചെയ്തു പ്രമേയം പരാജയപ്പെട്ട ഉടൻ കുമാരസ്വാമി രാജ്ഭവനി ലെത്തി ഗവർണർക്ക് രാജി സമർപ്പിക്കുകയായിരുന്നു ് ബി ജെ പി തന്റെ ഗവൺമെന്റിനെ മറിച്ചിടാൻ തുടർച്ചയായി ശ്രമി ക്കുകയായിരുന്നുവെന്ന് രാജിവെച്ച ശേഷം കുമാരസ്വാമി കുറ്റപ്പെടുത്തി അടുത്ത ബി ജെ പി ഗവൺമെന്റ് അധിക കാലം നിലനിൽക്കില്ലെന്നും തെര ഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് നല്പതെന്നും അദ്ദേഹം ബംഗളുരുവിൽ പറ ഞ്ഞു മന്ത്രിസഭാ രൂപീകരണത്തോടെ ബി ജെ പിയിൽ ആദ്യ ബോംബു പൊട്ടു മെന്നും കുമാരസ്വാമി പറഞ്ഞു ് ് ് ് ് ് അതിനിടെ പുതിയ ഗവൺമെന്റ് രൂപീകരണവുമായി ബന്ധപ്പെട്ട് ബി ജെ പി അധ്യക്ഷനും ആഭ്യന്തര മന്ത്രിയുമായ അമിത്ഷാ കർണാടകയിലെ പാർട്ടി നേതാക്കളുമായി ചർച്ച നടത്തി പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ബി

യെഡ്യൂരപ്പയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് രൂപീകരിക്കുമെന്നാണ് സൂചന യെഡ്യൂരപ്പയെയാണ് സ്ഥാഭാവികമായും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കാണുന്നതെങ്കിലും പാർട്ടി കേന്ദ്ര നേതൃത്വമാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരു മാനമെടുക്കേണ്ടതെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യ മന്ത്രി പ്രഹ്ളാദ് ജോഷി ന്യൂഡൽഹിയിൽ പറഞ്ഞു ബി ജെ പി കേന്ദ്ര നേതൃത്വവുമായി ആലോചിച്ചശേഷം ഗവൺമെന്റ് രൂപീകരിക്കാൻ അവകാശമുന്നയിച്ച് ഗവർണറെ കാണുമെന്ന് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ബി

ബി ജെ പി ഗവൺമെന്റ് കർഷകർക്ക് കൂടുതൽ പ്രാധാന്യം നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു ് അഴിമതി സഖ്യ ഗവൺമെന്റ് പുറത്തുപോയത് കർണാടകയിലെ ജനങ്ങൾക്ക് നല്ല വാർത്തയാണെന്ന് ബി ജെ പി വക്താവ് ജി

പിൻവാതിലിലൂടെയാണ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നതെന്നും ഭൂരിപക്ഷം നഷ്ടമായിട്ടും ആഴ്ചകൾ അധികാ രത്തിൽ തുടർന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു

സഖ്യം ഗവൺമെന്റ് രൂപീകരിച്ച അന്നുമുതൽ നിക്ഷിപ്ത താൽപര്യക്കാർ അകത്തും പുറത്തും ഗവൺ മെന്റിനെ ലക്ഷ്യം വെക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു രാജ്യം കണ്ട ഏറ്റവും ഹീനമായ കുതിരകച്ചവടമാണ് കർണാടക യിൽ ബി ജെ പി നടത്തിയതെന്ന് സംസ്ഥാനത്തിന്റെ ചുമതല വഹിക്കുന്ന എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ

കേന്ദ്ര ഗവൺമെന്റും ഗവർണറും മഹാരാഷ്ട്ര ഗവൺമെന്റും ബി ജെ പി നേതൃത്വവും സംയുക്തമായി നടത്തിയ കുതിര കച്ചവടത്തിലൂടെയാണ് ഗവൺമെ ന്റിനെ വീഴ്ത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനായി കോടി ക്കണക്കിന് കള്ളപ്പണം ഒഴുക്കിയതിനൊപ്പം കൂറുമാറിയ എം എൽ എമാർക്ക് മന്ത്രിസ്ഥാനവും അവർ വാഗ്ദാനം ചെയ്തതായി വേണുഗോപാൽ പറഞ്ഞു

നീട്ടി

എന്നാൽ വടക്കൻ ജില്ല കളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് ഇതിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് ജില്ല യിൽ ഇന്നും കണ്ണൂർ ജില്ലയിൽ ഇന്നും നാളെയും കാസർകോട് ജില്ലയിൽ വെള്ളിയാഴ്ച വരെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു

മത്സ്യ ത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്

മരിച്ചത് കണ്ണൂർ ജില്ലയിൽ രണ്ടുപേരും കോഴിക്കോട് ജില്ലയിൽ ഒരാളുമാണ് മരിച്ചത്

കൈവേലിയിൽ വാണിമേൽ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ വീട്ടമ്മ പാറുവിന്റെ മൃതദേഹം കണ്ടെത്തി

നടുവത്തൂർ എൽ പി സ്കൂളിൽ പ്രവർത്തിച്ചി രുന്ന ക്യാംപ് പിരിച്ചുവിട്ടു ് കണ്ണൂർ ജില്ലയിൽ കാലവർഷത്തിൽ എട്ട് വീടുകൾ പൂർണ്ണമായി തകർന്നു

കൃഷിനാശ ത്തിന്റെ കണക്ക് തിട്ടപ്പെടുത്തിവരുന്നതേയുള്ളൂ

മേഖലയിൽ വെള്ളപ്പൊക്ക കെടുതി തുടരുന്നു കൂടുതൽ വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ജില്ലയിൽ ആറു ദുരിതാശ്ചാസ ക്യാമ്പുകൾ കൂടി തുറന്നു

ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ് ഇടുക്കിയിൽ മഴയുടെ ശക്തി കുറഞ്ഞു

കൊച്ചി ധനുഷ്കോടി ദേശീയ പാതയിലെ നേര്യമംഗലം വനമേഖലയിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ തുടങ്ങി

ആധുനികവൽക്കരിക്കപ്പെടുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളും ശാഖകളുമടക്കം ആറായിര ത്തോളം കേന്ദ്രങ്ങൾക്ക് എല്ലാ ആധുനിക സങ്കേതങ്ങളും നൽകാൻ ഇതോടെ കഴിയുമെന്നും മന്ത്രി അറിയിച്ചു തൃശൂർ കല്ലൂർ സഹകരണബാങ്കിന്റെ കോർ ബാങ്കിംഗ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഒരു മാസത്തിനകം കേരള ബാങ്ക് യാഥാർത്ഥ്യമാകുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി പറഞ്ഞു ഇതു നില വിൽ വന്നാൽ സഹകരണ ബാങ്കുകൾക്ക് ഒന്നരലക്ഷം കോടിയോളം എൻ ആർ ഐ നിക്ഷേപം സ്വീകരിക്കാൻ കഴിയും ഇതിന്റെ കാൽ ശതമാനമെ ങ്കിലും ലഭിച്ചാൽ അത് നാടിന്റെ വികസനത്തിന് ഉപയോഗിക്കാമെന്നും കട കംപള്ളി വൃക്തമാക്കി മലപ്പുറം ജില്ലാ ബാങ്ക് മാത്രമാണ് കേരള ബാങ്കിൽ ചേരാൻ വിമുഖത കാണിക്കുന്നതെന്നും ഇത് മലപ്പുറത്തിന്റെയും കേരളത്തിന്റെ തന്നെയും സഹകരണമേഖലയ്ക്ക് ഗുണകരമല്ലെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു

വേണമെന്ന് ചാൻസലർ കൂടിയായ ഗവർണർ ജസ്റ്റിസ് പി സദാശിവം വൈസ് ചാൻസലർമാരോട് ആവശ്യപ്പെട്ടു ജനങ്ങളുടെ മനസ്സിൽ പരീക്ഷയുടെ സംശു ദ്ധിയെകുറിച്ച് സംശയം ജനിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകരുതെന്നും ഗവർണർ പറഞ്ഞു തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് സംഭവത്തിന്റെ പശ്ചാ ത്തലത്തിൽ വൈസ് ചാൻസലർമാർക്കയച്ച കത്തിലാണ് ചാൻസലർ കൂടി യായ ഗവർണർ ഈ നിർദ്ദേശം നൽകിയത് പരീക്ഷാസംവിധാനം കുറ്റമറ്റതാ ക്കാനും ശക്തിപ്പെടുത്താനും നടപടി വേണമെന്നും അതിൽ വിട്ടുവീഴ്ച പാടി ല്ലെന്നും ഗവർണർ പറഞ്ഞു

മനുഷ്യവകാശങ്ങൾ സംസ്ഥാനത്തെ സ് കൂളുകളിൽ പാഠ്യവിഷയമാക്കണമെന്ന് മന്ത്രി എ

കേരള ഗവൺമെന്റ് സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സ് ആണ് സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ ഹ്യൂമൻ റൈറ്റ്സ് എജുക്കേഷൻ ക്ലബുകൾ ആരംഭിച്ചു ബോധവത്കരണം നടത്തുന്നത് മെഡിക്കൽ കോളജ് ആശുപത്രികളിലെ തിരക്ക് കുറക്കാൻ ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ കൂടുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റികൾ തുടങ്ങുമെന്ന് മന്ത്രി കെ കെ ശൈലജ പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളജിൽ മാലിന്യ സംസ്കരണത്തിന് രണ്ടാമതൊരു ഇൻസിനറേറ്റർ കുടി അനുവദിക്കുമെന്നും മന്ത്രി അറിയിച്ചു കോട്ടയം ഗവൺമെന്റ് ഡന്റൽ കോളജിൽ അഡ്മിനിസ്ട്രേറ്റീവ് ആന്റ് റിസർച്ച് ബ്ലോക്കിന്റ ശിലാസ്ഥാപനവും വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി

കേരളാ പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ ഐ എൻ ടി യു സി ജനറൽ കൌൺസിൽ ഇടുക്കി കുമളിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ചെന്നിത്തല തൊഴിലാളി കൾക്കായി നിലകൊള്ളുന്ന പാർട്ടിയെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന പിണറായി ഗവൺമെന്റ് കർഷകർക്കായി ഒന്നും ചെയ്തില്ലെന്നും ജില്ലയിലെ അടഞ്ഞു കിടക്കുന്ന തോട്ടങ്ങൾ തുറക്കുമെന്നത് പ്രഖ്യാപനത്തിൽ ഒതുങ്ങിയെന്നും പ്രതി പക്ഷ നേതാവ് പറഞ്ഞു നെടുങ്കണ്ടം കസ്റ്റഡി മരണത്തിൽ അന്വേഷണം ശരിയായ ദിശയിലാക്കണമെന്നും മുൻ എസ് പിയെ സംരക്ഷിക്കുന്ന നിലപാ ടിൽ നിന്ന് പിൻതിരിയണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു

ഇന്ന് നടക്കുന്ന കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കേരളാ കോൺഗ്രസ് എമ്മിലെ ഇരു വിഭാഗങ്ങളും മൽസരിക്കുന്നു ജോസ് കെ മാണി വിഭാഗം സെബാസ്റ്റ്യൻ കുളത്തുങ്കലിനേയും പി ജെ ജോസഫ് വിഭാഗം അജിത് മുതിര മലയേയും സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചു

ഇതോടെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ നിലപാട് നിർണായകമായി യു ഡി എഫിലെ ധാരണ പ്രകാരം കേരളാ കോൺഗ്രസ് എമ്മിന് അവസരം നൽകാൻ കോൺഗ്രസിലെ സണ്ണി പാമ്പാടി രാജിവച്ചതിനെ തുടർന്നാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്

കാലതാമസമില്ലാതെ തീരുമാനമെടുക്കണമെന്ന് വകുപ്പ് മേധാവികൾക്ക് കണ്ണൂർ ജില്ലാ കലക്ടർ ടി വി സുഭാഷ് നിർദേശം ന്തർക്ടി തീരുമാനം അനുകൂലമാ ണെങ്കിലും പ്രതികൂലമാണെങ്കിലും പ്രവേഗത്തിൽ കൈക്കൊണ്ട് അപേക്ഷകനെ അറിയിക്കണം അടുത്ത മാസം മൂന്നിന് മന്ത്രി ഇ പി ജയരാജന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വൃവസായ അദാലത്തുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ വിലയിരുത്താൻ ചേർന്ന വകുപ്പുദ്യോഗ സ്ഥരുടെ യോഗത്തിലാണ് ജില്ലാ കലക്ടർ ഈ നിർദേശം നൽകിയത്

ഫെയർ മീറ്റർ റീസെറ്റ് ചെയ്യുന്നതിന് നിരക്ക് ഏകീകരിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി വിളിച്ചുചേർത്ത ഓട്ടോറിക്ഷ തൊഴിലാളി സംഘടനകളുടെയും ലൈസൻസികളുടെയും യോഗത്തിലാണ് തീരുമാനം

വയനാട് ജില്ലയിൽ അഗതിരഹിത കേരളം പദ്ധതി യുടെ പ്രയോജനങ്ങൾ ഗുണഭോക്താക്കൾക്ക് ലഭ്യമാ ക്കുന്നുവെന്ന് ഉറപ്പ് വരുത്തുന്നതിന്റെ ഭാഗമായി പദ്ധതിയുടെ സേവനങ്ങൾ ഇതുവരെ നൽകാത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ ആഴ്ച തന്നെ സേവനങ്ങൾ ലഭ്യമാക്കണമെന്ന് ജില്ലാ കളക്ടർ എ

പദ്ധതി നടത്തിപ്പുകാരായ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ ചേർന്ന തദ്ദേശ സ്വയംഭരണ അധ്യക്ഷൻമാരുടെ അവലോകന യോഗത്തിലാണ് നിർദേശം

പ്രായമായ ബംഗാളി ബാലന് ഡിഫ്തീരിയ സ്ഥിരീകരിച്ചു